സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ബി ജെ

സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു

വാക്സിൻ നൽകിയ രാജ്യമെന്ന നേട്ടം സ്വന്തമാക്കി ഇന്ത്യ മൂന്ന് കോടി വാക്സിൻ ഡോസുകളാണ് ഇന്ത്യ നൽകിയത്

ബാറ്റിംഗ് വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് ജയം മിതാലി രാജിന് റെക്കോർഡ് നേട്ടം

കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയും പ്രഖ്യാപിച്ചിട്ടുണ്ട്

ജെ

കൂടുതൽ വിവരങ്ങളുമായി പ്രവീണ് ്കുമാർ വോ്യിസ് സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഏറ്റെ അനിശ്ചിതത്വം നിലനിന്നിരുന്ന നേമം മണ്ഡലത്തിൽ കോൺ്ര്യസിൽ കെ

വിശദമായ ചർച്ചകൾക്ക് ശേഷമേ ഈ സീറ്റുകളിൽ പ്രഖ്യാപനം ഉണ്ടാകൂവെന്ന് ശ്രീ

ബാലുശേരിയിൽ സിനിമാനടൻ ധർമജനും തൃപ്പൂണിത്തുറയിൽ മുൻ മന്ത്രി കെ

അതേസമയം കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൽസരിക്കുന്ന ബിജെപി സ്ഥാനാർത്ഥിക ളുടെ പട്ടിക മുതിർന്ന നേതാവ് അരുൺ സിംഗാണ് ഡൽഹിയിൽ പുറ ത്തുവിട്ടത്

കെ കൃഷ്ണദാസ് കാട്ടാക്കടയിലും സി

മുൻ കോഴിക്കോട് സർവകലാശാല വൈ സ് ചാൻസലർ വി സി അബ്ദുൽ സലാമിന് തിരൂരിലും സിനിമാ നടൻ കൃഷ്ണകുമാറിന് തിരുവനന്തപുരത്തും മുൻ ഡിജിപി ജേക്കബ് തോമസിന് ഇരിങ്ങാലക്കുടയിലും മൽസരിക്കാൻ അവസരം നൽകി കോഴിക്കോട് നോർത്തിൽ എം ടി രമേശും മാനന്തവാടിയിൽ മണിക്കുട്ടനും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടംപിടിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

കേന്ദ്ര മന്ത്രി ബാബുൽ സുപ്രിയോ ടോളിഗഞ്ചിൽ നിന്നും മത്സരിക്കും

തമിഴ്നാട്ടിൽ എൻ ഡി എ

ജെ

സംസ്ഥാന ആധ്യിക്ഷൻ എൽ

ജെ

കോൺഗ്രസിന്റെയും ബിജെപിയുടെയും പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവന്നതിനു പിന്നാലെ സംസ്ഥാനത്ത് പ്രചാരണരംഗം സജീവമായി

ഡി

ഡി

വെള്ളിയാഴ്ചവരെയാണ് പത്രിക സമർപ്പിക്കാനുള്ള സമയം

ഒരു റിപ്പോർട്ട്

ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ രാജ്നാഥ് സിംഗ് എന്നിവർ പങ്കെടുത്തു

ഭിന്നിപ്പിന്റെ രാഷ്ട്രീയമാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന്തെന്ന് അസമിൽ ആതരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത കേന്ദ്ര ആരോപിച്ചു

ജെ പിയെ ഒരിക്കൽക്കൂടി ഭരണത്തിൽ എത്തിച്ചാൽ അസമിലെ വെള്ളപ്പൊക്ക പ്രശ്നം ഇില്ലുതാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം അസമിലെ ജനത്തയുകുട്ട താൽപര്യം സംരക്ഷിക്കുന്നതിൽ ബി ജെ

വൈകിട്ട് പശ്ചിമബംഗാളില്ലെത്തിയ ശ്രീ

അതേസമയം നന്ദിഗ്രാമിൽ പ്രചാരണത്തിനിടെ കാലിന് പരിക്കേറ്റ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി വീൽ ചെയറിലിരുന്ന് കൊൽക്കത്തയിൽ റോഡ് ഷോയിൽ പങ്കെടുത്തു ഭീരുക്കൾക്ക് മുന്നിൽ തലകുനിക്കില്ലെന്ന് ശ്രീമതി

ഇതിനിടെ നന്ദിഗ്രാമിൽ തനിക്കെതിരെ നടന്നത് ആസൂത്രിതമായ ആക്രമണമായിരുന്നു എന്ന മമത ബാനർജിയുടെ ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി

ഇന്ത്യയുടെ വാക്സിൻ മൈത്രി എന്ന ഉദ്യമം വഴി ബംഗ്ലാദേശ് മ്യാൻമർ നേപ്പാൾ ഭൂട്ടാൻ മാല്ദ്വീപ് മൌറീഷ്യസ് ശ്രീലങ്ക ബഹ്റൈൻ ഒമാൻ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഇന്ത്യൻ നിർമ്മിത വാക്സിനുകൾ അയക്കുന്നുമുണ്ട്

ഈ സംവിധാ നത്തിലൂടെ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ തടസ്സമില്ലാതെ പരിശോധിക്കാനാകും സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുന്നതായി എൻ

ഇ യിൽ അടയ്ക്കേണ്ട രജിസ്ട്രേഷൻ ഫീസ് ഒഴിവാക്കിയതായും അദ്ദേഹം പറഞ്ഞു

അഹമ്മദാബാദിലെ നരേന്ദ്ര മോദി സ്റ്റേഡിയത്തിലാണ് മത്സരം

ആദ്യ മത്സരത്തിൽ ഇഗ്ലെണ്ട് ഇന്ത്യയെ എട്ട് വിക്കറ്റിനാണ് പരാജയപ്പെടുത്തിയത്

ക്രിക്കറ്റ് കരിയറിൽ പതിനായിരം റൺസ് പൂർത്തിയാക്കിയ വനിതാ താരമെന്ന നേട്ടവും കഴിഞ്ഞദിവസം മിതാലി രാജ് സ്വന്തമാക്കിയിരുന്നു

ഉത്തർപ്രദേശിലെ സോൻഭദ്ര ജില്ലയിൽ വൻവാസി സമാഗം എന്ന പരിപാടിയിൽ ആദിവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ആദിവാസികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങൾ ആരാധനാലയങ്ങൾക്ക് തുലൃമാണെന്നും വിവിധ മേഖലകളിൽ ഉയർന്നുവരാൻ വിദ്യാഭ്യാസം അവരെ സഹായിക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു